പിയെ പരാജയപ്പെടുത്താൻ പ്രതി പക്ഷ പാർട്ടികൾക്ക് കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർക്കാനാ വാത്ത ഇന്ത്യ അടിയുറച്ച ബി

എഫും യു

എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു

പിയെ പരാജയപ്പെടു ത്താൻ പ്രതിപക്ഷ പാർട്ടികൾക്കോ അവരുടെ സഖ്യങ്ങൾക്കോ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

തന്റെ ഗവൺമെന്റിന്റെ ജനസ്വാധീനവും പാർട്ടിയുടെ വൻ വിജയവും കാരണം പ്രതിപക്ഷ പാർട്ടി കൾക്ക് ഒന്നിച്ചുനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് അദ്ദേഹം പറ ഞ്ഞു ന്യൂഡൽഹിയിൽ രണ്ടുദിവസത്തെ ബി

പി നിർവാഹക സമിതി യോഗത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാ നമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ മുദ്രാവാക്യവും പ്രധാന മന്ത്രി പ്രഖ്യാപിച്ചു തകർക്കാനാവാത്ത ഇന്ത്യ അടിയുറച്ച ബി

പി എന്നർത്ഥം വരുന്ന അജയ് ഭാരത് അടൽ ബാജപ എന്നതായിരിക്കും തെര ഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം വിജയവിശ്ചാസത്തോടെ പാർട്ടി യാത്ര തുട ങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു ചെറുപാർട്ടികൾപോലും കോൺഗ്രസിനെ സഖ്യത്തിന്റെ നേതൃനിരയിലേക്ക് വരാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരസ്പരം കാണാൻപോലും ഇഷ്ടമില്ലാത്ത പ്രതിപക്ഷത്തിന് ഒന്നി ച്ചുനിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രുവെട്ടിരി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ അടുത്ത അൻപത് വർഷത്തേക്ക് ബി

പി ഇന്ത്യ ഭരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു

പി ദേശീയ നിർവാഹക സമിതി അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പറയു ന്നു ദാരിദ്ര്യവും ജാതീയതയും വർഗീയതയും അഴിമതിയും ഇല്ലാത്ത ശക്തവും സമ്പദ്സമൃദ്ധവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനാണ് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും പ്രമേയം പറഞ്ഞു രുടെട്ട്ടറു ഇന്ധനവില വർദ്ധനയിൽ പ്രതി ഷേ ധിച്ച് സംസ്ഥാനത്ത് യു

എഫും എൽ

എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭി ച്ചു രാവിലെ ആറിനാരംഭിച്ച ഹർത്താൽ വൈകീട്ട് ആറിന് അവസാനിക്കും ദേശീയതലത്തിൽ കോൺഗ്രസ് ഭാരത്ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്

അതേസമയം ബന്ദിൽ നിന്ന് വിട്ടുനിൽക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്

ഇന്ധന വില വർദ്ധന ബി

പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യാത്തത് ജനങ്ങളുടെ വേദനയിൽ അവർക്ക് താല്പര്യമി ല്ലെന്നതിന് തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു

പെട്രോളിനെയും ഡീസലിനെയും ജി

ബന്ദ് സമാധാനപരമാ യിരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസ് നിർദ്ദേശിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്ത് ഹർത്താൽ പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിനും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കും തടസ്സമാ കരുതെന്ന് എൽ

എഫും യു

എഫും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരി താശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ ഹർത്താ ലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

കേരള എം

രുവെട്ടറു രാജീവ്ഗാന്ധി പ്രധക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷക്ക് വിധിക്ക പ്പെട്ട് ജയിലിൽ കഴിയുന്ന ഏഴ് പ്രതികളെയും മോചിപ്പിക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് ഗവർണറോട് ശുപാർശ ചെയ്തു

ജയകുമാർ ചെന്നൈയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ജയിൽ മോചനം ആവ ശൃപ്പെട്ട് പേരറിവാളൻ നൽകിയ ദയാഹർജി പരിഗണിക്കാൻ സുപ്രീംകോ ടതി കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു

കെ ശശീന്ദ്രൻ അറിയിച്ചു ബന്ദിപ്പൂർ കടുവാ സംരക്ഷണ കേന്ദ്ര ത്തിൽ ഏർപ്പെടുത്തിയ രാത്രിയാത്രാ നിരോധനത്തിന് താൽക്കാലിക ഇളവ് ലഭിക്കാൻ അടിയന്തര ഹർജി സമർപ്പിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം സംസ്ഥാനത്തിന് ലഭിച്ച അവസരമാണെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാനത്തെ പ്രളയക്കെടുതിയും ദുരിതാശ്ചാസ പ്രവർത്തനവും കണ ക്കിലെടുത്ത് നിരോധനത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് നീലഗിരി വയ നാട് നാഷണൽ ഹൈവേ ആന്റ് റെയിൽവെ ആക്ഷൻ കമ്മിറ്റി സുപ്രീംകോ ടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്ര അധ്യക്ഷനായ ബഞ്ച് അടിയന്തര ഹർജി സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് രുവെട്ടിരു പ്രളയത്തിന് ശേഷം എലിപ്പനിക്കെതിരെ കേരളം നടത്തിയ മുൻകരുതൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി കെ

തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ നവീകരിച്ച ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ധാക്കയിൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം മത്സരത്തിൽ മാലെദ്വീപിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ തോൽപ്പി ച്ചത് ബുധനാഴ്ച സെമിയിൽ ഇന്ത്യ പാക്കിസ്ഥാനെ നേരിടും

എസ് ഓപ്പൺ ടെന്നീസ് പുരുഷവിഭാഗം കിരീടം സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന്

ജോക്കോവിച്ചിന്റെ മൂന്നാം യു

എഫ് കോണ്ടിനന്റൽ കപ്പ് അത്ലറ്റിക്സിൽ ട്രിപ്പിൾ ജംപിൽ ഇന്ത്യയുടെ അർപിന്ദർ സിംഗ് വെങ്കലം നേടി

ജക്കാർത്ത ഏഷ്യൻ ഗെയിം സിൽ ട്രിപ്പിൾ ജംപിൽ അർപിന്ദർ സ്വർണം നേടിയിരുന്നു

രുട്ടിട്ട്ട്ട്ട്ട്ട്ട കാലിക്കറ്റ് സർവ്വകലാശാല ഇന്റർസോൺ വനിതാ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളജ് ജേതാക്കളാ യി ഫൈനലിൽ കോഴിക്കോട് പ്രൊവിഡൻസ് കോളജിനെയാണ് അവർ പരാജയപ്പെടുത്തിയത് അർദ്ദമെട്ടിരി സ്ത്രീകൾക്കെതിരായ അക്രമത്തിൽ പാർട്ടി മുഖംനോക്കാതെ നടപടി യെടുക്കുമെന്ന് സി

ഇടതുപക്ഷം ഭരിക്കുന്ന ഒരിടത്തും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും അവർ അറിയിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക യോഗം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവ ശ്യപ്പെട്ടു പൊതുമേഖലയിൽ രാജ്യത്ത് ഒഴിവുകൾ കുറഞ്ഞുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

എം മണി സന്ദർശിച്ചു

രുട്ടിട്ടിട്ടിട പ്രളയ ദുരിതാശ്ചാസ വിതരണത്തിൽ രാഷ്ട്രീയം അരുതെന്നും പാളിച്ചകൾ തുടർന്നാൽ പ്രതികരിക്കുമെന്നും കെ

ഹസ്സൻ പറഞ്ഞു പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ്സ് കമ്മറ്റി നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ദുരിതാശ്ചാ സവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ വാഹനങ്ങൾക്കോ ഹർത്താലിന്റെ പേരിൽ തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കലക്ടർ വ്യക്തമാക്കി

ഉണക്കുഭീഷണി നേരിടുന്ന പാലക്കാട് ജില്ലയിലെ നെൽപാടങ്ങളിലേക്കു മലമ്പുഴ വെള്ളം ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പദ്ധതി ഉപദേശകസമിതി ഇന്ന് യോഗം ചേരും കനത്തമഴയിൽ ഡാം നിറഞ്ഞതിനെ തുടർന്ന് പുഴയിലേക്ക് തുറന്ന വെള്ളം കനാലുകളിലേക്കു തിരിച്ചുവിട്ടു കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാനാണ് ആലോചിക്കുന്നത്

ൾട്ട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി ഊർജ്ജിത ഉറവിട നശീകരണ പ്രചാരണം സംഘടിപ്പിച്ചു പ്രളയബാധിത പ്രദേശ ങ്ങൾക്കും പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾക്കും പ്രാധാന്യം നൽകിയായിരുന്നു ക്യാമ്പെയിൻ

ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ സഹകരണത്തോടെ പ്രളയബാധിത പ്രദേശങ്ങൾ ശുചീകരിക്കും നാളെ രാവിലെ ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും

ൾഷ്ടെഴും പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ട് ജില്ലാ തല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ഇന്ന് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും